പണമാക്കലിന് കേന്ദ്ര മന്ത്രിസഭാ ആനുമതി

ന് യഥാർത്ഥ നിയന്ത്രണ ര്േഖു മുറികടക്കുകയോ വെടിയുതിർക്കുകയോ ച്ചെയ്തിട്ടില്ലെന്ന് ഇന്ത്യൻ സേന

റഫേൽ യുദ്ധവിമാനങ്ങൾ നാളെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും

കേരളത്തിൽ സമ്പർക്ക രോഗബാധിതരിൽ തുടർച്ചയായ വർദ്ധന

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരെ സഹായിക്കാൻ ജൂൺ ഒന്നിനാണ് കേന്ദ്ര സർക്കാർ പി എം സ്വനിധി ആരംഭിച്ചത്

നാല് ലക്ഷത്തിലധികം പേർക്ക് തിരിച്ചറിയൽ രേഖ നൽകി

മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിങ് ചൌഹാനും വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കും പദ്ധതിയുടെ മൂന്ന് ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി വിദൂര സംവാദം നടത്തും

പ്രത്യേക ദൌത്യ വിഭാഗത്തിലുള്ള താ്രീഫ്പ് അടിസ്ഥാന മത്സരാധിഷ്ഠിത ലേല ആസ്തികളാണ് ഇൻഫാസ്ട്രിക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിലൂടെ ധനസമാഹരണത്തിന് ഉപയോഗ്പിക്കുന്നത് ഇതുവഴി ലഭിക്കുന്ന പണം കമ്പനി പുതിയ നിക്ഷേപങ്ങൾക്ക് വിനിയോഗിക്കും പ്രസരണശൃംഖലയുടെ വിപുലീകരണത്തിനും മറ്റ് മൂലധന നിക്ഷേപ പദ്ധതികൾക്കും ഇത് പ്രയോജനപ്പെടും

ഇതിൽ നിന്നുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ധനസമാഹരണത്തിന് നടപടിയെടുക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചെലവു കുറഞ്ഞതും ഫലപ്രദമായതുമായ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കാൻ റെയിൽവേ പങ്കാളിത്തം ക്ഷണിക്കുന്നുവെന്നും സി

ഐ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ റെയിൽവേ മന്ത്രി പറഞ്ഞു

എന്നാൽ ഒരു ഘട്ടത്തിലും ഇന്ത്യൻ സൈന്യം യഥാർത്ഥ നിയന്ത്രണരേഖ മറികടക്കുകയോ വെടിവയ്പ്പ് നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് കരസേന വ്യക്തമാക്കി

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യോമ്ട്രീസ്നാ് മേധാവി എയർ ചീഫ് മാർഷൽ ആർ

ഇന്ത്യൻ വ്യോമസേനയുടെ ഗോൾഡൻ ആരോസ് സ്കാഡ്രോനിലേക്കാണ് റഫേൽ വിമാനങ്ങൾ കൂട്ടിച്ചേർക്കുക

എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെ ദേശസാൽക്കരിക്കുന്നതിന് തുല്യമാകുമെന്ന് അഡ്വക്കേറ്റ് ജനറൽ അശുതോഷ് കുംഭകോണി ബോംബെ ഹൈക്കോടതിയെ അറിയിച്ചു കോവിഡ് ചികിത്സയ്ക്ക് അമിതമായ നിരക്ക് ഈടാക്കുന്നത് തടയാൻ സർക്കാരിന് സംവിധാനമുണ്ടോ എന്ന് കോടതി ആരാഞ്ഞിരുന്നു

ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് അടുത്തയാഴ്ച വാദം കേൾക്കും

ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപ്പര്യ ഹർജിയിലാണ് കോടതി വാദം കേട്ടത്

മതപരമായ ചടങ്ങുകൾ നിർവ്വഹിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം സമൂഹത്തിന്റെ പൊതുതാൽപ്പര്യത്തെയും ആരോഗ്യത്തെയും അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നത് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചാലും ജനങ്ങൾ അത് പാലിക്കുമെന്ന് ഉറപ്പില്ല നിലവിലെ സാഹചര്യത്തിൽ ആരാധനാലയങ്ങൾ തുറക്കുന്നത് കോവിഡ് വ്യാപനം കുതിച്ചുയരാൻ ഇടയാക്കുമെന്ന് സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചു

കിയോസ്കുകളുമായി യാത്രക്ക്ട് ്രസമ്പർക്കം പുലർത്തുന്നത് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുന്നതായി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ പ്പറഞ്ഞു

നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ ആശങ്കപ്പെടാനില്ലെന്നും ജാഗ്രത പുലർത്തണമെന്നും ഗവർണ്ണർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

സി ഐ സി ഐ ബാങ്ക് മുൻ മേധാവി ചന്ദ കൊച്ചാറിന്റെ ഭർത്താവ് ദീപക് കൊച്ചാർ റിമാൻഡിൽ

ദശലക്ഷം പേരിലെ കോവിഡ് കേസുകളിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ മാധ്യമങ്ങളോട് പറഞ്ഞു

ഹോമിയോയിൽ കൊവിഡിന് മരുന്നുണ്ടെന്നോ പ്രതിരോധിക്കുമെന്നോ താൻ പറഞ്ഞിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി ഫേസ്ബുക്ക് സന്ദേശത്തിൽ പറഞ്ഞു

ഇന്നലെ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഗവർണർ ബൻവാരിലാൽ പുരോഹിതുമായി കൂടിക്കാഴ്ച നടത്തി

പ്രാഥമികമായി ലഭിച്ച വ്വീപ്പർങ്ങൾ പ്രകാരം ഇക്കാര്യത്തിൽ തനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും ആദ്ദേഹം പറഞ്ഞു